ക്ഷീരമേഖല കർഷകർക്ക് ന്യായവില ലഭിച്ചാൽ മാത്രമേ ക്ഷീരമേഖലയെ നിലനിർത്താനാകുകയുള്ളുവെന്ന് മന്ത്രി കെ രാജു തിരുവനന്തപുരം മേഖല ക്ഷീരോത്പാദക യൂണിയന്റെ നേതൃത്വത്തിൽ പുന്നപ്രയിൽ മിൽമഭവനത്തിൻെറ താക്കോൽദാനവും പ്രളയദുരിതമനുഭവിച്ച ക്ഷീരകർഷകർക്കും സംഘങ്ങൾക്കുമുള്ള ധനസഹായ വിതരണവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കാലിത്തീറ്റ വില നിയന്ത്രിക്കാനുള്ള സംവിധാനം ഗവൺമെന്റ് ഒരുക്കിയിട്ടുണ്ട്

ഇതിനുള്ള പ്രീമിയം സൊസൈറ്റികളൊ പഞ്ചായത്തൊ വഹിക്കുമെന്നും മന്ത്രി അറിയിച്ചു

പി മുഖ്യ പ്രഭാഷണം നടത്തി

കോഴിക്കോട് ആകാശവാണി നിലയം സ്റ്റേഷൻ ഡയറക്ടറായും ദൂരദർശൻ ആകാശവാണി വിവിധ നിലയങ്ങളിലും പ്രവർത്തിച്ചിട്ടുണ്ട്

സാഹിത്യ അക്കാദമി അവാർഡ് ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്